വലുതാണെന്ന് പ്രധാനമന്ത്രി ന്ദേന്ദ്രമോദി

ഇലക്ട്രിക് വാഹന്ദ്രങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ കേന്ദ്ര ഉപരിതല ഗതാഗ്ത് മന്ത്രാലയത്തിന്റെ അനുമതി

പെട്ടിമുടി ഗവർണറും മുഖ്യമന്ത്രിയും സന്ദർശിച്ചു

കേന്ദ്ര പ്രത്യക്ഷനികുതി ബോർഡിന്റെ പുതിയ പരിഷ്കാരങ്ങൾ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉദാത്തഭരണ മാതൃകയാണ് കേന്ദ്രസർക്കാർ പിന്തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ജനസൌഹാർദ്ദമായ നിയമങ്ങൾക്കും നയങ്ങൾക്കും രൂപം നൽകുന്നതിനാണ് സർക്കാർ മുൻഗണന നൽകുന്നത് മുഖം നോക്കാതെയുള്ള നികുതിസംവിധാനമാണ് നടപ്പാക്കുന്നതെന്നും ശ്രീ മോദി പറഞ്ഞു നിലവിലെ സംവിധാനത്തോടുള്ള ഭയം അകറ്റുന്നതിന് പുറമെ കൂടുതൽ സുതാരൃതയും കൃതൃയും ഉറപ്പാക്കാൻ ഇനി കഴിയും രാജ്യത്ത് സർക്കാർ നടപ്പാക്കുന്ന ഘടനാപരമായ പരിഷ്കാരങ്ങൾ പുതിയ തലത്തിലെത്തി നിൽക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗതാഗത സെക്രട്ടറിമാർക്ക് അയച്ച കത്തിലാണ് മന്ത്രാലയം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ടെസ്റ്റിംഗ് ഏജൻസി നൽകുന്ന അംഗീകാര സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ബാറ്ററികളില്ലാത്ത വാഹനങ്ങൾ വിൽക്കാനും രജിസ്റ്റർ ചെയ്യാനും കഴിയും രജിസ്ട്രേഷനായി ബാറ്ററിയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കേണ്ട ആവശ്യമില്ലെന്ന് കത്തിൽ പറയുന്നു

ഇന്ധനവില കുറയ്ക്കാൻ ഈ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

രോഗലക്ഷണങ്ങൾ ഇല്ലാത്തതിനാൽ മന്ത്രി വീട്ടുനിരീക്ഷണത്തിൽ തുടരുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ താനുമായി സമ്പർക്കം പുലർത്തിയവർ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും മന്ത്രി ട്വീറ്റ് ചെയ്തു

കോവിഡ് ചികിൽസയിലായിരുന്ന അഞ്ച് പേർ കൂടി ഇന്നലെ മരിച്ചെങ്കിലും ആലപ്പുഴ എൻഐവിയുടെ ഫലം വന്നാലെ അന്തിമ സ്ഥിരീകരണം നടത്തു അതേസമയം സംസ്ഥാനത്ത് സമ്പർക്കത്തിലൂടെ രോഗം വ്യാപിക്കുകയാണ്

വാക്സിൻ പരീക്ഷണത്തിനായി തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് ദേശീയ സാങ്കേതിക ഉപദേശക സമിതിയുടെ നിർദ്ദേശങ്ങളും തേടും

രാവിലെ കേരള പൊലീസിന്റെ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട സംഘം ഒമ്പതരയോടെ ആനച്ചാലിലെ ഹെലി പാഡിൽ എത്തി

മൂന്നാറിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തശേഷം ഉച്ചതിരിഞ്ഞ് സംഘം തിരുവനന്തപുരത്തേക്ക് മടങ്ങും അതിനിടെ പെട്ടിമുടിയിൽ ഇന്നും തിരച്ചിലിൽ തുടരുകയാണ്

എഫ് സ്ഥാനാർത്ഥി എം

ദിവാകരൻ എം

കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലളിതമായ രീതിയിലാണ് പരിപാടികൾ നടത്തുന്നത് മറ്റന്നാൾ ചെങ്കോട്ടയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയപതാക ഉയർത്തിയതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യും ഡൽഹിയിൽ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്

ഡൽഹി സെക്രട്ടേറിയറ്റിൽ സംഘടിപ്പിക്കുന്ന ദിന്റിച്ചരണ ചടങ്ങിൽ രാജ്യ തലസ്ഥാനത്തെ കോവിഡ് പ്രതിരോ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ആരോഗ്യ പ്രവർത്തകർ ശുചീകരണ തൊഴിലാളികൾ പ്ലാസ്മ പ്രദ്യാതാക്കൾ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ ആദ്യരിക്കുമെന്ന് ഡൽഹി സംസ്ഥാന പൊതുഭരണ വകുപ്പ് മന്ത്രി ഗോപാൽ റായി പറഞ്ഞു

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പതാക ഉയർത്തും

ന്യൂസ്ഡെസ്ക് ആകാശവാണി

പുതിയ അക്രമങ്ങളൊന്നും നടന്നില്ലെന്നാണ് പൊലീസ് റിപ്പോർട്ട് സംഭവത്തിൽ അന്വേഷണം നടത്താൻ ജില്ലാ മജിസ്ട്രേറ്റിനെ കർണാടക സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്

പ്രദേശത്ത് പൊലീസിന് പുറമെ സി

ധമനികളിലെയും ഹൃദയത്തിലെയും രക്തയോട്ടം അടക്കമുള്ള കാര്യങ്ങളിൽ യന്ത്രസഹായത്താൽ പുരോഗതിയുണ്ടെന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

മൂത്രാശയത്തിലുണ്ടായ അണുബാധയെ തുടർന്നു കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹത്തെ ലക്നൌവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്

രാജസ്ഥാൻ നിയമസഭ വെള്ളിയാഴ്ച സമ്മേളിക്കാനിരിക്കെ നട്ടത്തുന്ന പാർട്ടി യോഗത്തിൽ സച്ചിൻ പൈലറ്റും അദ്ദേഹത്തിനൊപ്പമുള്ള എംഎൽഎമാരും പങ്കെടുക്കുമെന്നും കോൺഗ്രസ് അറിയിച്ചു